മാത്രമേ സ്വയംപര്യാപ്ത ഭാരതം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഉയർത്തിക്കാട്ടുന്ന ഡെസ്റ്റിനേഷൻ നോർത്ത് ഈസ്റ്റ് പരിപാടി കേന്ദ്രമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു

കിങ്സ് ഇലവൻ പഞ്ചാബിനെ ബാറ്റിങ്ങിനയച്ചു

പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം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 അടുത്ത കാലത്തായി കാർഷിക മേഖല നിരവധി നിയന്ത്രണങ്ങളിൽ നിന്നും മോചനം നേടിയതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്താഗതിയിൽ രാജ്യത്തെ സംബന്ധിച്ച സമഗ്രമായ അറിവ് ഉണ്ടായിരുന്നെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗാന്ധിജിക്ക് പുറമേ ഭഗത് സിംഗിനെയും ലാൽ ബഹദൂർ ശാസ്ത്രിയേയും ജയപ്രകാശ് നാരായണെയും നാനാജി ദേശ്മുഖിനെയും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അനുസ്മരിച്ചു കഥകളുടെ ചരിത്രത്തെക്കുറിച്ചും സർഗ്ഗാത്മകതയെക്കുറിച്ചും പ്രധാനമന്ത്രി വാചാലനായി കഥ പറച്ചിലിന്റെ നീണ്ട സമ്പന്നമായ പാരമ്പരൃമാണ് ഭാരതത്തിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു വിവേകത്തിന്റെയും ബുദ്ധിയുടെയും കാര്യങ്ങൾ കഥകളിലൂടെ നിഷ്പ്രയാസം പറഞ്ഞുകൊടുക്കാൻ സാധിച്ചിരുന്നു തമിഴ് നാട്ടിലും കേരളത്തിലും കഥ പറയുന്ന വളരെ രസകരമായ രീതി ഉണ്ടായിരുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി വിൽപ്പാട്ടിനെക്കുറിച്ചും പാവകളിയെകുറിച്ചും മൻ കി ബാതിൽ പരാമർശിച്ചു

പാർലമെന്റിന്റെ ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ ചേർന്ന മൺസൂൺ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ബില്ലുകൾ പാസാക്കിയത്

മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്

ന്യൂസ് ഡെസ്ക് ആകാശപ്പാണി

ആകെ മരണസംഖ്യ പത്തുലക്ഷത്തോട് അടുക്കുകയാണ്

വടക്കു കിഴക്കൻ മേഖലയുടെ സംസ്ക്കാരം സവിശേഷമാണെന്നും വടക്കു കിഴക്കൻ ജനത അത് എക്കാലവും സംരക്ഷിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നതായും ഭാവിയിൽ ലോകത്തെ സുപ്രധാന വിനോദ സഞ്ചാര മേഖലയായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ മാറുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ പ്രകാരം ലഡാക്കിന് ഉള്ള സംരക്ഷണം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ഉറപ്പു നൽകിയതിനെ തുടർന്നീറണ് തീരുമാനം മാറ്റിയതെന്ന് നേതാക്കൾ പ്രസ്താവിജിയിലൂടെ അറിയിച്ചു

കേന്ദ്ര ടൂറിസം മന്ത്രി പ്രഹ്താദ് പട്ടേൽ ചടങ്ങിൽ പങ്കെടുത്തു പ്രാദേശിക പാരമ്പരൃത്തെയും വിനോദസഞ്ചാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ദേഖോ അപ്നാ ദേശ് അഥവാ സ്വന്തം നാടിനെ കണ്ടറിയുക എന്ന പദ്ധതി നടപ്പിലാക്കാൻ മുൻകൈയെടുത്ത ടൂറിസം മന്ത്രാലയത്തിനെ ശ്രീ ധർമേന്ദ്ര പ്രധാൻ പ്രശംസിച്ചു

ആറ് വർഷം മുമ്പ് വസതിയിൽ വച്ചുണ്ടായ വീഴ്ചയെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റതു മുതൽ അബോധാവസ്ഥയിൽ തുടരുകയായിരുന്നു അദ്ദേഹം

വിർചലർ രീതിയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബൌദ്ധിക സ്വത്തവകാശ സഹകരണവുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിലും ഡെൻമാർക് പങ്കാളിയാവും

ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയ്ക്കിലാണ് മത്സരം നടക്കുന്നത്

കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് നടക്കുന്ന മത്സരത്തിൽ കാണികളുടെ എണ്ണം ആയിരമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്

എന്നാൽ ഇതുമൂലം കാലാവസ്ഥയിലുണ്ടായ മാറ്റം മത്സരങ്ങൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് ഇന്ന് നടക്കുന്ന ഓപ്പണിംഗ് റൌണ്ട് മത്സരങ്ങളിൽ പുരുഷ സിംഗിൾസിൽ അലക്സാണ്ടർ സ്വെരേവ് ഡെന്നിസ് നോവാക്കിനെയും സ്റ്റാനിസ്ലാസ് വാവ്റിങ്ക മുൻ ലോക ചാമ്പ്യൻ ആൻഡി മുറെയെയും നേരിടും വനിതാ സിംഗിൾസിൽ വിക്ടോറിയ അസരെങ്ക ടാങ്ക കോവിനിക്കിനെ തിരെ വിജയം നേടി

വിവാഹമോചന നടപടികൾ പൂർത്തിയായിട്ടില്ലെങ്കിലും പെൻഷന് അർഹരായ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് വിവാഹമോചനത്തിനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പെൻഷന് അർഹതയുണ്ടാകും